അന്താരാഷ്ട്രവിപണിയിലെ വിലവർദ്ധന ന് മൂലമാണ് പാചകവാതകവില വർദ്ധിപ്പിച്ചതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം

സംഘം ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമുവു്മായും ജമ്മുകൾമീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്റ്റ് ഗീതാ മിത്തലുമായും കൂടിക്കാഴ്ച നടത്തി ഒട്ടേറ്റ് ്യോഗങ്ങളിൽ പങ്കെടുത്ത വിദേശ സംഘം ചീഫ് ഉസ്ര്കട്ടറി വി

ഇന്നലെ ശ്രീനഗർ സന്ദർശിച്ച സംഘം വ്യാപാരികളുമായും സംരംഭകരുമായും കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തിയ സംഘം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ സ്ഥിതിഗതികളും വിലയിരുത്തി യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് സംഘത്തിലുള്ളത്

സാംബ ജില്ലയിലെ വിജയ്പൂർ പ്രദേശത്താണ് എയിംസ് ആരംഭിക്കുന്നത് ജമ്മു പൂഞ്ച് ലോക്സഭ എം

രാജ്യത്ത് രണ്ട് എയിംസുകൾ ലൂഭിക്കുന്ന ആദ്യകേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മുകൾമീര്യെന്ന് ശ്രീ

ജമ്മു മേഖലയിലുള്ള ്ള്ള ജനങ്ങൾക്ക് തുച്ഛമായ ചെലവിൽ ആരോഗ്യ സംരക്ഷിന്റ് സംവിധാനങ്ങൾ എത്തിക്കുകയാണ് എയിംസിലൂടെ ലക്ഷ്യമിടുന്നത്

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

കേരളത്തിൽ നേരത്തെ മൂന്നുപേർക്ക് രോഗം റിപ്പോർട്ടു ചെയ്ത പശ്ചാത്തലത്തിൽ കൈകൊണ്ട നടപടികളും ഇപ്പോഴുള്ള സ്ഥിതിവിശേഷങ്ങളും യോഗം അവലോകനം ചെയ്തു

ന്യൂസ്ഡസ്ക് ആകാശവാണി

വൈറസ് പരിശോധന അടക്കമുള്ളവയ്ക്കാണ് സഹായം നൽകുക രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിലും വിമാനത്താവളങ്ങളിലും കർശന നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ് രാജ്യത്ത് മെഡിക്കൽ ഉത്പന്നങ്ങളുടെ ശേഖരം ആവശൃത്തിന് കരുതിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

ഇയാൾ ചൈനയിലെ വുഹാൻ പ്രവീശ്യയിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ ആളാണ്

മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം പൊതുസേവന നയതന്ത്ര രംഗങ്ങളിലും പ്രവാസി സമൂഹത്തിനും സ്വരാജ് നൽകിയ സുഷമ സംഭാവനകളോടുള്ള ആദരസൂചകമായാണ് ഈ നടപടിയെന്നും മന്ത്രാലയം അറിയിച്ചു

അന്താരാഷ്ട്ര വിപണിയിൽ കഴിഞ്ഞ മാസമുണ്ടുക്കുപില വർദ്ധന മൂലമാണ് എൽ

ജി

യുടെ വിലയിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സംരക്ഷണം ലഭിക്കും

ദ്രുതഗതിയിലുള്ള വളർച്ചയും വൈവിദ്ധ്യമാർന്ന പരിണാമങ്ങളും ഉണ്ടായ മാധ്യമ ലോകത്തിൽ റേഡിയോയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഉള്ളതെന്ന് റേഡിയോ ദിന സന്ദേശത്തിൽ ഐക്യരാഷ്ട്ര അന്റോണിയോ ഗുട്ടറസ് സഭാ സെക്രട്ടറി ജനറൽ അഭിപ്രായപ്പെട്ടു

തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് യു ഡി എഫ് സമർപ്പിച്ച അപ്പീൽ അംഗീകരിച്ച് കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബഞ്ചിന്റെ സുപ്രധാന വിധി

നിർമാണ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ ട്രാഫിക് പോലീസുകാർ കർഷക തൊഴിലാളികൾ തുടങ്ങിയവരും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാജ്യത്ത് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പത്ത് ലക്ഷത്തോളം കർഷകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതായും അവർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു